തുടരുന്നു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡന് മുൻതുക്കം

മത്സരത്തിൽ ബാംഗ്ലൂർ ഹൈദരാബാദിനെ നേരിടും

ആഗോള നിക്ഷേപക വട്ടമേശ സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നിക്ഷേപകർക്ക് ലാഭത്തോടെയും വിശ്വാസത്തോടെയും നിക്ഷേപിക്കാൻ കഴിയുന്ന ഇടമാണ് ഇന്തൃ അടുത്തിടെ കൊണ്ടുവന്ന കാർഷിക പരിഷ്ക്കാരങ്ങൾ രാജ്യത്തെ കർഷകർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുമെന്നും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തൂി രാജ്യം കാർഷിക കയറ്റുമതിയുടെ കേന്ദ്രമാവാൻ ഒരുങ്ങുകിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ധന്മന്ത്രാലയവും ദേശീയ നിക്ഷേപക അടിസ്ഥാന സ്ഷകര്യനിധിയും സംയുക്തമായാണ് നിക്ഷേപക വട്ടമേശ സ്പൂമ്മേള്നം സംഘടിപ്പിച്ചത്

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവലോകനം ചെയ്യാനും പ്രാദേശിക ആഗോള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള അവസരമാണ് ഉച്ചകോടി നിരവധി കരാറുകൾ സംബന്ധിച്ച തീരുമാനവും ഇന്നുണ്ടാകും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

രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ

രാവിലെ ഏഴു മണിമുതൽ വൈകിട്ട് ആറുവരെയാണ് പോളിംഗ് എന്നാൽ നക്സൽ ബാധിത ജില്ലകളായ രാംനഗർ മഹിഷി തുടങ്ങിയിടങ്ങളിൽ പോളിംഗ് വൈകുന്നേരം നാല് മണിക്ക് അവസാനിക്കും വാത്മീകി നഗർ പാർലമെന്റ് മണ്ഡലത്തിൽ നാളെ ഉപതെരഞ്ഞെടുപ്പും നടക്കും

വോട്ടെണ്ണൽ ആരംഭിച്ച് രണ്ട് ദിവസം പിന്നിടുമ്പോഴും ആര് വിജിയിക്കുമെന്നതിലെ അവൃക്തത തുടരുകയാണ് പോട്ടെണ്ണില്ന്റെ ആദ്യമണിക്കുറിൽ ട്രംപ് മുന്നേറിയെങ്കിലും ഡെ്മോക്രറ്റിക് സ്ഥാനാർഥി ജോ ബൈഡനാണു നിലവിൽ വിജയസാധ്യത കൂടുതൽ

കണ്ടെയിൻമെന്റ് സോണുകൾക്ക് പുറത്തുള്ള സർവകലാശാലകൾക്കും കോളേജുകൾക്കും അതത് സംസ്ഥാന കേന്ദ്രഭരണപ്രദേശ ഭരണകൂടങ്ങളുമായി ആലോചിച്ച് പ്രവർത്തനം പുനരാരംഭിക്കാവുന്നതാണെന്ന് യുജിസി വ്യക്തമാക്കി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ പുറത്തിറക്കിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ ആഭ്യന്തര വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിനായി ആഴ്ചയിൽ ആറ് ദിവസം അധ്യയനം നിശ്ചിത എണ്ണം കുട്ടികളെ പങ്കെടുപ്പിച്ചുള്ള ക്ളാസുകൾ തുടങ്ങിയ നിർദ്ദേശങ്ങളും യുജിസി മുന്നോട്ടുവെച്ചിട്ടുണ്ട് അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഓരോ ദിപ്പൂസത്തെയും അധ്യയന സമയങ്ങളിൽ മാറ്റം വരുത്താവുന്നത്താണ്ട് പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനു മുൻപായ്പ്പിക്കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ സ്ഥാപ്പിനും ഉൾപ്പെടുന്ന മേഖല സുരക്ഷിതമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉറ്പ്പാക്കണം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തുലത്തിൽ ആരോഗ്യ സുരക്ഷാ വിഷയങ്ങളിൽ കേന്ദ്ര സ്ംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള നിർദേശങ്ങൾ മാനദണ്ഡങ്ങൾ എന്നിവ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണമായി പാലിക്കണമെന്നും മാർഗ്ഗ നിർദ്ദേശത്തിൽ പറയുന്നു മാർഗ്ഗ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാതാപിതാക്കളും തയ്യാറാകണമെന്നും അതുവഴി കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാനാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ നടന്ന നാലാമത് ഇന്ത്യ ഒപെക് ഉന്നതതല ഊർജ ഉച്ചകോടിയിൽ ഒപെക് സെക്രട്ടറി ജക്ട്റിൽ മുഹമ്മദ് സൻസൂയി ബർക്കിണ്ടോയ്ക്കൊപ്പം സംയുക്ത്മായി അദ്ധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹ്റ്റ്

യാത്രക്കാരുടെ സൌകര്യം വർദ്ധിപ്പിച്ച് യാത്ര സുഖകരമാക്കാൻ വേണ്ട സുരക്ഷാ സൌകര്യങ്ങൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു

ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സ്ത്രീകളുടെ ജീവിതനിലവാരം ഉയർത്തുന്നതിന് ആധുനിക വിപണിയുടെ ആവശ്യകതയനുസരിച്ച് സ്ത്രീകൾ പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു